തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നേ റ്റം പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ യുഡിഎഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ പത്രിക നൽകി

ൾ ൽ ൾ റഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡണ്ട് വ്ളാഡിമിർ പുടിനുമായി ചേർന്ന് സ്വേഡയിലെ കപ്പൽ നിർമാണശാല സന്ദർശിച്ചു ശാലയുടെ മാനേജ്മെന്റുമായും തൊഴിലാളികളുമായും മോദി ആശയവിനിമയം നടത്തി ഭാവി യിൽ സ്വേഡ കപ്പൽ നിർമാണ ശാലയിൽ നിർമിക്കുന്ന കപ്പലു കൾ റഷ്യയുടെ എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും ഇന്ത്യ യുൾപ്പെടെ ലോകരാജ്യങ്ങൾക്ക് വിതരണം ചെയ്യാനാണ് ഉപയോ ഗപ്പെടുത്തുക

മേഖല അന്താരാഷ്ട്ര വിഷയങ്ങളും ഉഭയകക്ഷി പങ്കാളിത്തവും ഇരു നേതാക്കളും ചർച്ച ചെയ്യും രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് പുലർച്ചെയാണ് നരേ ന്ദ്രമോദി റഷ്യയിലെത്തിയത് മൂന്നാം തവണ റഷ്യ സന്ദർശന ത്തിനെത്തിയ അദ്ദേഹത്തിന് വ്ളാഡിവൊസ്തോക്ക് വിമാനത്താ വളത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി സ്ഥാനമൊഴിയുന്ന ഗവർണർ പി സദാശിവത്തിന് സംസ്ഥാന ഗവ

സംസ്ഥാനത്തിന്റെ മതേതരമൂലൃങ്ങൾ പി സദാശിവം ഉയർത്തിപിടിച്ചുവെന്ന് തിരുവനന്തപുരത്ത് നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പ്രളയകാലത്ത് ഗവർണർ കൈക്കൊണ്ട നടപടികളെയും മുഖ്യമന്ത്രി പ്രശംസിച്ചു കേരളത്തെ അതിന്റെ എല്ലാ സൌന്ദര്യത്തോടും കൂടിയാണ് താൻ കണ്ടതെന്ന് ജസ്റ്റിസ് സദാശിവം പറഞ്ഞു കേരളത്തിന്റെ പുനർനിർമാണത്തിലുടനീളം ഒത്തൊരുമയുടെ സൌന്ദരൃം കാത്തു സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗവർണർ പറഞ്ഞു സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നി ത്തല തുടങ്ങിയ നേതാക്കൾ യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുത്തു

കോഴിക്കോട് കുന്ദമംഗലം പൂവാട്ടുപറമ്പ് ബ്ലോക്ക് പഞ്ചാ യത്ത് ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നസീബാ റായ് വിജയിച്ചു

കാസർക്കോട് ബേഡടുക്ക പഞ്ചായത്തിലെ നാലാം വാർഡും മലപ്പുറം മങ്കട പഞ്ചായത്തിലെ കോഴിക്കോട്ട് പറമ്പ് വാർഡും എൽ ഡി എഫ് നിലനിർത്തി

തൃശൂർ കുഴൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ കോൺഗ്രസ് വിജയിച്ചു

മൂന്നെണ്ണം യു ഡിഎഫും ഒരെണ്ണം ബി ജെ പിയും പിടിച്ചെടുത്തു കൊല്ലം കൊളക്കട പഞ്ചായത്തിലെ മലപ്പാറയിൽ യു ഡി എഫിന്റെ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു

യുഡിഎഫ് സ്ഥാനാർത്ഥി ജോസ് ടോമും എൻ ഡി എ സ്ഥാനാർത്ഥി എൻ ഹരിയും രാവിലെ പത്രിക നൽകി

ഇതോടെ തിരഞ്ഞെടുപ്പു പ്രചരണം സജീവമാകും പാലാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചിഹ്നം സംബ ന്ധിച്ച തർക്കങ്ങൾ അടഞ്ഞ അധ്യായമാണെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ചിഹ്നതർക്കം ബാധിക്കില്ലെന്ന് അദ്ദേഹം കോട്ടയത്ത് വ്യക്തമാക്കി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ തീരുമാനം എടുക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു ടൈറ്റാനിയം കേസിൽ സംസ്ഥാന ഗവൺമെന്റ് വൈര്യ നിര്യാ തന ബുദ്ധിയോടെ പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെട്ട ടുത്തി ഡി ജി പി ലോക്നാഥ് ബെഹ്റക്കെതിരായ പരാമർശ ത്തിൽ തനിക്കെതിരായ നടപടി കോടതിയിൽ നേരിടുമെന്ന് മുല്ല പ്പള്ളി വൃക്തമാക്കി

കോൺഗ്രസ് നേതാക്കൾ വഴി നിലപാട് ജോസ് കെ മാണിയെ അറിയിച്ചതായി ജോസഫ് പറഞ്ഞു പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിന് രണ്ടില ചിഹ്നം നൽകില്ലെന്ന് മുന്നണി അറിയിച്ചിട്ടില്ലെന്ന് കേരള കോൺഗ്രസ് എം നേതാവ് റോഷി അഗസ്റ്റിൻ എം എൽ എ പറഞ്ഞു ചർച്ചകൾ തുടരുകയാ ണെന്നും ചിഹ്നം അനുവദിക്കുന്നത് സംബന്ധിച്ച് യു ഡി എഫ് കൺവീനറും പ്രതിപക്ഷ നേതാവും തീരുമാനം കൈക്കൊള്ളു മെന്നും അദ്ദേഹം കോട്ടയത്ത് അറിയിച്ചു രണ്ടില ചിഹ്നം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി അറിയിച്ചു ഏത് ചിഹ്നം കിട്ടിയാലും തെര ഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു

കർണാടകയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ കള്ളപ്പണ ഇടപാട് ആരോപിച്ച് അറസ്റ്റു ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്ത മായി രാമനഗര ചെന്നപട്ടണ എന്നിവിടങ്ങളിലടക്കും പലയിടത്തും കോൺഗ്രസ് പ്രവർത്തകർ ഗതാഗതം തട്സപ്പെടുത്തി ശിവകു മാറിന്റെ അനുയായികൾ ബന്ദാഹ്വനവും നൽകിയിട്ടുണ്ട് പ്രശ്ന സാധൃത മുൻനിർത്തി രാമനഗര ജില്ലയിൽ സ്കൂളുകൾക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി ചിലയിടങ്ങളിൽ വാഹനങ്ങൾക്കു നേരെ കല്പേറുണ്ടായതായി റിപ്പോർട്ടുണ്ട്

കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ബി ജെ പി പ്രതികാര നടപടികളെടുക്കുകയാണെന്ന് മുൻമുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മറ്റ് സംസ്ഥാന നേതാക്കളും കുറ്റ പ്പെടുത്തി സംഘർഷത്തെ തുടർന്ന് ബംഗളുരുവിൽ നിന്ന് മൈസൂർ വഴി കെ എസ് ആർ ടിസി സർവീസുകൾ നിർത്തിവെച്ചു കേരളത്തി ലേക്ക് വരുന്ന സർവീസുകളാണ് നിർത്തിയത്

ആരോ ഗൃ സ്ഥിതി സംബ ്ധിച്ച് ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ശിവകു മാറിനെ കോടതിയിൽ ഹാജരാക്കുക തിരുവനന്തപുരത്ത് ഇന്ത്യ ദക്ഷിണാഫ്രിക്കു എ ടീമുകളുടെ നാലാം ഏകദിന ക്രിക്കറ്റ് മത്സരം മഴ മൂലം നിർത്തിവെച്ചു ടോസ് നേടിയ ഇന്തൃ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

കാർട്ടറിൽ അഞ്ച് സെറ്റ് നീണ്ട മത്സരത്തിൽ ഗ്രിഗർ ദിമിത്രോവി നോടാണ് ഫെഡ്റർ തോറ്റത്

കണ്ണൂർ നഗരസഭാ ചെയർപെഴ്സാണായി യു ഡി എഫിലെ സുമാ ബാലകൃഷ്ണനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ഇ പി ലതയെയാണ് അവർ തോൽപ്പിച്ചത്

സുമാ ബാലകൃഷ്ണൻ അല്പസമയത്തികം സതൃ പ്രതിജ്ഞ ചെയ്യും മോഷണക്കുറ്റം ആരോപിച്ച് പൊലീസ് കസ്റ്റഡിയിലെടുത്ത പാറശ്ശാല സ്വദേശി ശ്രീജീവിന്റെ മരണം ആത്മഹത്യയാണെന്ന് സിബിഐ കോടതിയെ അറിയിച്ചു ശ്രീജിവിന്റേത് കസ്റ്റഡി മര ണമല്ലെന്നും പൊലീസ് പിടിയിലായ ശേഷം കയ്യിൽ സൂക്ഷിച്ചി രുന്ന വിഷം ഇയാൾ കഴിക്കുകയായിരുന്നുവെന്നും വ്യക്തമായ തായി പ്രത്യേക സിബിഐ കോടതിയിൽ അന്വേഷണസംഘം അറിയിച്ചു പൊലീസ് ദേഹപരിശോധന നടത്താതെയാണ് ഇയാളെ സെല്ലിലിട്ടത് വിഷം ഉള്ളിൽ ചെന്ന നില്യിലാണ് ശ്രീജീ വിനെ എത്തിച്ചതെന്ന് ഡോക്ടറുടെ മൊഴിയും സാക്ഷി മൊഴി കളും ലഭിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ആറ്റിങ്ങലിൽ ലോഡ്ജിൽ താമസിക്കുമ്പോൾ എഴുതിയ ആത്മഹത്യാ കുറിപ്പും ഇതിന് തെളിവായി സിബിഐ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട് ശ്രീജിവിന്റെ സഹോദരൻ ശ്രീജിത്തിന്റെ നിരാഹാര സമരത്തെ തുടർന്നാണ് അന്വേഷണം സിബിഐ ഏറ്റെടുത്തത്

രാജ്യാന്തര വിപണിയിലെ വില വർധ നയും വിവാഹ് സീസണുമാണ് സ്വർണവില ഉയരാൻ കാരണ മെന്ന് വിലയിരുത്തപ്പെടുന്നു

മുക്കൈ കൽപാത്തി ഭാരതപ്പുഴകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്ക ണമെന്ന് അധികൃതർ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കായി കോഴിക്കോട്ട് അനു വദിച്ച സി

എച്ച് എസ് സെന്റർ കല്ലായി സി

കേന്ദ്ര ഭവന നഗ രകാര്യ ഡയറക്ടറേറ്റ് എം കെ രാഘവൻ എം